പെരിയയിലെ ഇരട്ടക്കൊലക്കേസ് സി

പെരിയ കൊലപാതകത്തിൽ എം

എ യ്ക്ക്പങ്കുണ്ടെങ്കിൽ തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

എസ്

സിയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ ജീവ നക്കാരുമായി എൽ ഡി എഫ് കൺവീനർ ചർച്ച നടത്തി പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻനിധിയിൽ അപേക്ഷിക്കാൻ സമയപരിധിയില്ലെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ സുശക്തമാണെന്നും വൈകാതെതന്നെ അഞ്ചുലക്ഷംകോടി അമേരിക്കൻ ഡോളറെന്ന നിലയിലേക്ക് അതു വളരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ദക്ഷിണകൊറിയൻ തലസ്ഥാനമായ സോളിൽ ഇന്ത്യ കൊറിയ വാണിജ്യ സിമ്പോസിയത്തിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം

ലോകത്തെ മറ്റൊരു സമ്പദ്വ്യവസ്ഥയ്ക്കും ഏഴ് ശതമാനം വാർഷിക വളർച്ച നേടി യെടുക്കാനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിനും ഗവൺമെന്റിനുംവേണ്ടി ഹോംഗാർഡുകൾ ചെയ്യുന്ന സേവനങ്ങൾ ഏറെ മഹത്തരമാണെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു ഡ്യൂട്ടിക്കിടെ അപകടത്തിൽപ്പെടുന്ന ഹോംഗാർഡുമാരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം ഗവൺമെന്റ് ഗൌരവമായി ആലോചിക്കുന്നുണ്ടെന്നും ആശ്രിതനി യമനത്തിന്റെ കാര്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹോംഗാർഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂർ ചക്കരക്കല്ലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡണ്ട് ബി അജയകുമാർ അധ്യക്ഷ നായി

പി മാരായ പി കെ ശ്രീമതി കെ കെ രാഗേഷ് തുടങ്ങി യവരും സംബന്ധിച്ചു കാസർകോട് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശര ത്ലാലിന്റെയും വീടുകൾ മന്ത്രി ഇ

ഇരുവരുടെയും ബന്ധുക്കളെ മന്ത്രി സമാശ്വസിപ്പിച്ചു അന്വേ ഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും അക്കാര്യത്തിൽ തെറ്റിദ്ധാരണവേണ്ടെന്നും ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നില യിൽത്തന്നെയാണ് വീടുകൾ സന്ദർശിച്ചതെന്നും മന്ത്രി മാധ്യമ ങ്ങളോട് പറഞ്ഞു

ബി ഐ അന്വേഷണം എന്ന ബന്ധുക്കളുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പെരി യയിലേത് ദാരുണമായ സംഭവമാണെന്നും സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് നടപടിയെടുക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു പെരിയയിലെ ഇരട്ടക്കൊലക്കേസ് സി

ഐ എം അട്ടിമറി ക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നി ത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു കേസിൽ അറസ്റ്റിലായ പീതാംബരനിൽ മാത്രം ഒതുക്കിതീർക്കാനാണ് ശ്രമം പാർട്ടി നേതാ ക്കളുടെ ആജ്ഞാനുവർത്തികളായാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നതെന്ന പരാതി വ്യാപകമാണ് കൊലപാതകി കൾക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടിയായി സി

എം അധപതിച്ചെന്നും കൊലപാതകത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന പാർട്ടിയാണ് അതെന്നും ചെന്നിത്തല പത്രസമ്മേളനത്തിൽ കുറ്റ പ്പെടുത്തി പെരിയയിലെ ഇരട്ടക്കൊലക്കേസിൽ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും മതിയായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാകും പൊലീസ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുക ഇന്നലെ രാത്രി അറസ്റ്റിലായ സജി ജോർജ്ജിനെ ഇന്ന് കോടതി യിൽ ഹാജരാക്കും അഞ്ചുപേർ നിലവിൽ പൊലീസ് കസ്റ്റഡിയി ലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നോ അദ്ദേഹം കൈയാ ആഭ്യ ന്തരവകു പ്പിൽ നിന്നോ സാനാരണ ളുന്ന ജനങ്ങൾക്ക് നീതിലഭിക്കില്ലെന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

തികച്ചും പക്ഷപാതപരവും ഏകപക്ഷീയവുമായ സമീപനമാണ് പൊലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഭീകരാക്രമണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അതേശൈലിയിലാണ് സി

എമ്മിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു ജനതാൽപ്പര്യം മാത്രമല്ല രാജ്യതാൽപ്പര്യം പോലും മാനിക്കാൻ കഴിയാത്തത്തിലേക്ക് സി

ഐ എം അധപതിച്ചിരിക്കുകയാണെന്നും സുധീരൻ കുറ്റപ്പെ ടുത്തി കാസർകോട് പെരിയയിൽ കൊല്ലചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട് സന്ദർശിച്ചശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുധീരൻ പെരിയ കൊലപാതകത്തിൽ എം

എ യ്ക്ക് പങ്കുണ്ടെങ്കിൽ തെളിവ് അന്വേഷണോദ്യഗസ്ഥർക്ക് നൽകുകയാണ് വേണ്ടതെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ പത്തനംതിട്ടയിൽ പറഞ്ഞു

കേരളത്തിലെ എല്ലാകാര്യങ്ങളും സി ബി ഐ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കേരള പൊലീസിനെ പിരിച്ചുവിടുന്നതല്ലെ നല്ലതെന്നും അദ്ദേഹം ചോദി ച്ചു പൊലീസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ സി ബി ഐ അന്വേ ഷണം ആവശ്യപ്പെടുന്നത് കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാ ണെന്നും കോടിയേരി മാധ്യമങ്ങളോട് പറഞ്ഞു ഇരട്ടക്കൊലപാതകക്കേസ് അന്വേഷണത്തിൽ തൃപ്തിയി ല്ലെന്നും സി ബി ഐ അന്വേഷണം ആവശ്യ പ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും കൊല്ലപ്പെട്ട കൃപേ ഷിന്റെ അച്ഛൻ കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു അറസ്റ്റിലായ പ്രതി പീതാംബരൻ മാത്രമാണ് കൃത്യത്തിൽ പങ്കെടുത്തതെന്ന് വിശ്വസിക്കുന്നില്ല കൂടുതൽപേർ പ്രതികളാണെന്നും ഗൂഢാലോ ചന നടത്തിയ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

എസ്

സിയിൽ നിന്നും പിരിച്ചുവിട്ടതിനെതിരെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന എംപാനൽ ജീവന ക്കാരുടെ പ്രതിനിധികളുമായി എൽ

എഫ് കൺവീനർ എ വി ജയരാഘവൻ ചർച്ചനടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പുനൽകിയതായി സമരസമിതി നേതാക്കൾ പറഞ്ഞു ഗതാഗതമന്ത്രി സ്ഥലത്തെത്തി തീരുമാനമെടുക്കുന്നതുവരെ സമരം തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം ക്സിഫ്ഹൌസിലേക്ക് ജീവ നക്കാർ ഇന്ന് മാർച്ച് നടത്താൻ നിശ്ചയിച്ചെങ്കിലും അത് നിർത്തി വെച്ചു

കുൽഭൂഷൺ ജാദവ് കേസിൽ പാക്കിസ്ഥാന്റെ അഞ്ച് ഹർജി കൾ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളി

എന്നാൽ ഇറാനിൽ നിന്ന് പാക്കിസ്ഥാനിലേക്ക് കടന്നപ്പോൾ അറസ്റ്റുചെയ്തെന്നാണ് പാക്കി സ്ഥാന്റെ വാദം പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജ്ജെ വാല ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭീകരാക്രമണം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വീഡിയോ ചിത്രീകരണം നട ത്തുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജെയ്ഷെ മുഹ മ്മദിന്റെ മുന്നറിയിപ്പ് വീഡിയോ കേന്ദ്രഗവൺമെന്റ് അവഗണി ക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാല് മണിക്കൂർ നീണ്ട വീഡിയോ ചിത്രീകരണ ദൃശ്യങ്ങൾ സുർജ്ജെവാല മാധ്യമങ്ങൾക്ക് നൽകി കേന്ദ്രപദ്ധതിയായ പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയി ലേക്ക് അപേക്ഷിക്കാൻ സമയപരിധിയില്ലെന്ന് മന്ത്രി വി

ജനുവരി മുതൽ മുൻകാല പ്രാബലൃ ത്തോടെ പദ്ധതിയുടെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി സുനിൽകുമാർ കോട്ടയം തലയാഴത്ത് നിർവഹിക്കും ആദ്യ രാജ്യാന്തര ചൈൽഡ് ഹെൽത്ത് സമ്മിറ്റ് തിങ്കളാഴ്ച തിരു വനന്തപുരത്ത് മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും പത്ത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും മുഴുവൻ സംസ്ഥാനങ്ങ ളിലെയും ആരോഗ്യസെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘങ്ങളും സമ്മിറ്റിൽ പങ്കെടുക്കും ആരോഗ്യമേഖലയിലെ കേരളമാതൃകയും വിവിധരാജ്യങ്ങളിൽ കുട്ടികളുടെ ആരോഗ്യസംരക്ഷണകാര്യത്തിൽ നടപ്പാക്കിയ വിജ യകരമായ പദ്ധതികളും സമ്മിറ്റ് ചർച്ചചെയ്യും ശബരിമല വിഷയത്തിൽ ഗവൺമെന്റുമായി ചർച്ചക്കില്ലെന്ന് എൻ

എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ശബരിമലയിലെ ആചാരാനുഷ്ഠാ നങ്ങളും വിശ്വാസവും സംരക്ഷിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി യെയും സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണനെയും പലതവണ അറിയിച്ചതാണെന്നും അനുകൂലമായ പ്രതികരണമല്ല ഇവരിൽ നിന്ന് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീംകോടതി വിധി അനുകൂലമായാലും പ്രതികൂലമായാലും എൻ

എസ് വിശ്വാസവിഷയത്തിലെടുത്ത നിലപാടിൽത്തന്നെ ഉറച്ചുനിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി

എസ് എസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം കോടിയേരി ബാല കൃഷ്ണൻ പറഞ്ഞിരുന്നു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ പുതിയ നഗരസഭാ ബസ് സ്റ്റാന്റും കെ

വ്യത്യസ്ത വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന ഉല്പ ന്നപ്രദർശന മേളയും ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്തന് ചട്ടങ്ങൾ മറികടന്ന് പരോൾ അനുവദിക്കുന്നതിനെതിരെ കെ കെ രമ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റി കേസ് തിങ്കളാഴ്ച പരിഗണിക്കും ജയിൽചട്ടങ്ങൾക്കും നിയ മങ്ങൾക്കും വിധേയമായാണ് രോഗിയായ കുഞ്ഞനന്തന് പരോൾ അനുവദിച്ചതെന്നാണ് ഗവൺമെന്റിന്റെ വാദം

ഐ സംസ്ഥാന സെക്രട്ടറി കാനംരാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടങ്ങി ശനിയാഴ്ച വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയെത്തും അടുത്തമാസം രണ്ടിന് തൃശൂരിൽ സമാപിക്കും പാലക്കാട് ജില്ലയടക്കം സംസ്ഥാനത്ത് പലയിടങ്ങളും കൊടും ചൂടിന്റെ പിടിയിലേക്കമരുകയാണ്

മുണ്ടൂർ ഐ

ടി

പ്രളയത്തെ തുടർന്നുണ്ടായ കാലാവസ്ഥാവ്യതിയാനം സംസ്ഥാനത്ത് ചൂട് ഇനിയും വർധിപ്പിക്കു മെന്നാണ് കാലാവസ്ഥാനിരീക്ഷകർ നൽകുന്ന സൂചന

കെ ജാനു പറ ഞ്ഞു ഉത്തരവിനെ നിയമപരമായി നേരിടുമെന്നും അവർ മാധ്യമ ങ്ങളോട് പറഞ്ഞു അതേസമയം വനത്തിൽ നിന്നും ആദിവാസികളെ ഒഴിപ്പിക്ക ണമെന്ന സുപ്രീംകോടതി ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെ ന്റ് അപ്പീൽ നൽകുമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഗ്രാമവികസനത്തിലെ നൂതന ആശയങ്ങൾ ഗാന്ധിയൻ വീക്ഷ ണത്തിൽ എന്ന വിഷയത്തിൽ കോഴിക്കോട് റീജ്യണൽ സയൻസ് സെന്ററിൽ നടക്കുന്ന പ്രദർശനംഇന്ന് സമാപിക്കും

കാലിക്കറ്റ് സർവകലാശാല എ സോൺ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് നാളെ ഷൊർണൂർ എസ്

സ്റ്റേജിതര മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഞായ റാഴ്ച കലോത്സവം സമാപിക്കും പിറവം പള്ളിക്കേസിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഓർത്തഡോക്സ് വിഭാഗം പിൻവലിച്ചു പൊലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് പിൻവലിച്ചത് പുതിയ രേഖ കൾ സഹിതം ഹർജി വീണ്ടും സമർപ്പിക്കാൻ കോടതി അനുമതി നൽകി